അഷ്റഫ് ഘാനിയും വെർച്ചൽ കൂടിക്കാഴ്ച നടത്തി ഷെഹ്തൂത്ത് അണക്കെട്ട് നിർമാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു

എല്ലാ നടപടികളും സ്വീക്രിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ

ഷെഹ്തൂത്ത് അണക്കെട്ട് നിർമാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇരു രാ്ജ്യങ്ങളും ഒപ്പുവച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അഫ്ഗാൻ വിദേശകാരൃമന്ത്രിയും ചേർന്നാണ് ധാരണാപത്രത്തി ഒപ്പുവച്ചത് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ പുരോഗതിയിൽ നിർണായകമായി നിലകൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ അടക്കമുള്ളവ ആ സൌഹൃദത്തിന് ഉദാഹരണമാണ് അഫ്ഗാൻ സർക്കാരിന്റെ സമാധാന നടപടികളെ ഇന്ത്യ എല്ലായ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

നമ്മുടെ പൊതുഭാവി പുനർനിർവ്വചിക്കുക എല്ലാവർക്കും സുരക്ഷിതമായ പരിസ്ഥിതി എന്നതാണ് ഉച്ചകോടിയുടെ ഇത്തവണത്തെ വിഷയം

പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ബൈഡന് മോദി ആശംസകൾ നേർന്നു പ്രാദേശിക പ്രശ്നങ്ങളും മറ്റ് മുൻഗണനാ വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു കാലാവസ്ഥാ വൃതിയാനം അന്താരാഷ്ട്ര ക്രമം തുടങ്ങിയ കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാനും രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തം മെച്ചപ്പെടുത്താനും ഇരുവരും ്യാരണയിലെത്തി

വിശദാംശങ്ങളുമായി അക്ഷയ്

കാണാതായവർക്കായുള്ള തെരച്ചിലിനൊപ്പം അപകടത്തിൽപ്പെട്ടവരെ മാറ്റിപാർപ്പിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ സംഘം സൈന്യം എന്നിവയെ പ്രദേശത്ത് വിന്യസിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു

ടി ബി പി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാന സർക്കാർ സൈന്യം ഐ ടി ബി

ആർ എഫ് എസ് ഡി ആർ എഫ് എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാ പ്രവർത്തനം പുരോഗമിക്കുകയാണ്

ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത് എറണാകുളം ജില്ലയാണ്

ടി

സി ആർ

എന്നാൽ ഹൈക്കോടതി നിർദേശത്തെ തുടർന്നാണ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചത് മറ്റെല്ലാ പരിശോധനാ നിരക്കുകളും പഴയതുപോലെ തുടരും

രാജ്യസഭ പ്രതിപക്ഷ പാർട്ടി നേതാവ് ഗൂലാം നബി ആസാദിനെ പ്രശംസിച്ച് വികാരാധീനനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്

പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർട്ടികാരൃങ്ങളിൽ മാത്രം ഒതുങ്ങിനിൽക്കാതെ രാഷ്ട്രീയത്തിന്റെ മറ്റ് തലങ്ങളിലേക്കും ഉയർന്നുവന്ന വൃക്തിയായിരുന്നു ഗുലാംനബി ആസാദെന്നും കോവിഡ് പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിന് സർവകക്ഷി യോഗം വിളിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ടുവച്ചത് അദ്ദേഹമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി രാജൃത്തെ ഏറെ ആത്മാർത്ഥതയോടെ സേവിച്ച വൃക്തിയാണ് ഗുലാംനബി ആസാദെന്ന് എൻ സി

വിമാനത്താവളം വേണമെന്നു ആവശ്യം സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പരിഗണ്ടന്ന്യിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യസുഭയിൽ പറഞ്ഞു ഡൽഹി ദേശീയ തലസ്ഥാന മേഖലാനിയ്മം ഇന്ന് രാജ്യസഭയിൽ പാസാക്കി

ഉത്തരാഖണ്ഡിലെ ചമോലി വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് സഭാംഗങ്ങൾ ഒരു മിനിറ്റ് മൌന പ്രാർത്ഥനയും നടത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

നിന്ന് ഒൻപത് പേരെയും ജെ

രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ഫാഗു ചൌഹാൻ മന്ത്രിമാർക്ക് സതൃവാചകം ചൊല്ലിക്കൊടുത്തു

ഇതോടെ ഊർജ്ജ ഉപഭോഗത്തിൽ രണ്ടാമതുള്ള യൂറോപ്യൻ യൂണിയനെ ഇന്ത്യ പിന്തള്ളുമെന്നും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്

ചലച്ചിത്രമേഖലയിലെ നിരവധി പ്രമുഖർ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നാളെ വൈകുന്നേരം ആറിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും

പട്ടികജാതി പട്ടികവർഗ്ഗ കോളനികളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്താനാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചത്

സംഘം ചൈനീസ് സഹ്പ്രവത്തകരുമായി ചേർന്ന് വുഹാനിലെ ഹിൽട്ടൺ ഒപ്റ്റിക്സ് വാലി ഹോട്ടലിൽ സംയുക്ത വാർത്താസമ്മേളനം നടത്തും കോവിഡ് ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാൽ മുൻകൂട്ടി അപേക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കാകും പ്രവേശനാനുമതി